പാർലമെന്റ് സംയുക്ത സമ്മേളനത്തെ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് ഇന്ന് അഭിസംബോധന ചെയ്യും സാമ്പത്തിക ദുർബല വിഭാഗങ്ങൾക്ക് മുൻഗണന നൽകി രാജ്യത്തെ സർവകലാശാലകളിലെ മൂന്ന് ലക്ഷത്തിൽപരം ഒഴിവു കൾ ഉടൻ നികത്തുമെന്ന് കേന്ദ്ര മാനവശേഷി വികസന മന്ത്രി രമേശ് പൊക്രിയാൽ കടലാക്രമണഭീഷണി നേരിടുന്ന മത്സൃത്തൊഴിലാളികളെ മാറ്റി പ്പാർപ്പിക്കാൻ പ്രത്യേക പുനരധിവാസ പദ്ധതിക്ക് സംസ്ഥാന മന്ത്രി സഭായോഗം അംഗീകാരം നൽകി ലോകകപ്പ് ക്രിക്കറ്റിൽ ന്യൂസിലന്റ് നാല് വിക്കറ്റിന് ദക്ഷിണാഫ്രി ക്കയെ തോൽപ്പിച്ചു ഒരുരാജ്യം ഒരു തിരഞ്ഞെടുപ്പ് എന്ന ആശയത്തിൽ സമയബന്ധിത മായി നിർദ്ദേശങ്ങൾ സമർപ്പിക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സമി തിയെ നിയോഗിക്കും സമിതി എല്ലാ രാഷ്ട്രീയ പാർട്ടികളുമായും ചർച്ച നടത്തുമെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ്സിങ് അറിയിച്ചു

ഇത് ഗവൺമെന്റിന്റെ അജണ്ടയല്ലെന്നും രാഷ്ട്രത്തിന്റെ അജണ്ടയാണെന്നും പ്രധാനമന്ത്രി യോഗത്തെ അറിയിച്ചതായി അദ്ദേഹം പറഞ്ഞു എല്ലാ രാഷ്ട്രീയ പാർട്ടികളെയും വിശ്വാസത്തിലെടുത്തുമാത്രമെ ഇക്കാര്യത്തിൽ ഗവൺമെന്റ് മുന്നോട്ട് പോകൂ എന്നും ഭിന്നാഭിപ്രായങ്ങൾ മാനിക്കു മെന്നും രാജ്നാഥ്സിങ് വൃക്തമാക്കി ഒരുരാജ്യം ഒരുതിരഞ്ഞെടുപ്പ് എന്ന ആശയത്തെ യോഗത്തിൽ പങ്കെടുത്ത മിക്ക രാഷ്ട്രീയപാർട്ടികളും പിന്തു ണച്ചതായി അദ്ദേഹം പറഞ്ഞു ഒരേസമയം എങ്ങനെ തിരഞ്ഞെടുപ്പ് നടത്താൻ കഴിയും എന്നത് സംബന്ധിച്ച് സി

ഐയും സി

എമ്മും ആശങ്ക പ്രകടിപ്പിച്ചെങ്കിലും ഈ ആശയത്തെ അവർ നേരിട്ട് എതിർത്തില്ലെന്ന് അദ്ദേഹം അറിയിച്ചു

കേന്ദ്രമന്ത്രിമാരായ അമിത്ഷാ നിതിൻ ഗഡ്കരി പ്രഹ്ലാദ് ജോഷി എന്നിവരും ബി

വർക്കിങ് പ്രസിഡന്റ് ജെ

നദ്ദയും ്യോഗത്തിൽ പങ്കെടുത്തു എന്നാൽ കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽഗാന്ധിയും തൃണ മൂൽകോൺഗ്രസ് ബി

പി ഡി

ഐ

എം

പി ജെ

യു ബി

ഡി ശിരോമണി അകാലിദൾ പി

പി നാഷണൽ കോൺഫറൻസ് തുടങ്ങിയ പാർട്ടികളുടെ നേതാക്കൾ യോഗത്തിൽ പങ്കെ ടുത്തു ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പ് എന്ന ആശയം യഥാർത്ഥ പ്രശ്ന ങ്ങളിൽനിന്ന് ജനശ്രദ്ധ തിരിക്കാനാണെന്ന് കോൺഗ്രസ് കുറ്റപ്പെടുത്തി ഇക്കാര്യത്തിൽ ബി

യ്ക്കുതന്നെ സ്ഥായിയായ നിലപാടില്ലെന്നും കോൺഗ്രസ് വക്താവ് ഗൌരവ് ഗൊഗോയ് ന്യൂഡൽഹിയിൽ പറഞ്ഞു രണ്ട് സംസ്ഥാനങ്ങളിലോ രണ്ട് രാജ്യസഭാ സീറ്റുകളിലോ ഒരുമിച്ച് തിര ഞ്ഞെടുപ്പ് നടത്താൻപോലും കഴിയാത്ത ബി

യ്ക്ക് ഒറ്റതിരഞ്ഞെ ടുപ്പിനെക്കുറിച്ച് സംസാരിക്കാൻ അർഹതയില്ലെന്നും ഗൊഗോയ് കുറ്റ പ്പെടുത്തി ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പ് എന്ന നിർദ്ദേശം രാജ്യത്തിന്റെ ഫെഡ റൽ സ്വഭാവത്തിനു വിരുദ്ധമാണെന്ന് സി

എം ജനറൽ സെക്ര ട്ടറി സീതാറാം യെച്ചൂരി യോഗത്തിനുശേഷം പറഞ്ഞു

പാർലമെന്റ് സംയുക്ത സമ്മേളനത്തെ രാഷ്ട്രപതി രാംനാഥ് കോവിദ് ഇന്ന് അഭിസംബോധനചെയ്യും

ഗവൺമെന്റ് നട പ്പാക്കാൻ ഉദ്ദേശിക്കുന്ന വിവിധ പദ്ധതികളും ഗവൺമെന്റ് നയങ്ങളും പ്രസംഗത്തിൽ രാഷ്ട്രപതി ഉൾപ്പെടുത്തുമെന്നാണ് പ്രതീക്ഷ നയപ്രഖ്യാ പനപ്രസംഗം കഴിഞ്ഞാൽ ഇരുസഭകളും വേറെ വേറെ യോഗം ചേർന്ന് ഇന്നത്തേക്ക് പിരിയും നയപ്രഖ്യാപന പ്രസംഗത്തിന് നന്ദിപ്രമേയചർച്ച ഇരു സഭകളിലും നാളെ ആരംഭിക്കും എല്ലാവരെയും ഒപ്പം നിർത്തി നിഷ്പക്ഷ രീതിയിൽ ലോക്സഭാ നട പടികൾ മുന്നോട്ട് കൊണ്ടുപോകുമെന്ന് സ്പീക്കർ ഒം ബിർള അറിയി ച്ചു ചെയർ ഒരിക്കലും പക്ഷപാതം കാണിക്കില്ലെന്നും സ്പീക്കറായി തിര ഞ്ഞെടുക്കപ്പെട്ടശേഷം അദ്ദേഹം ലോക്സഭയിൽ പറഞ്ഞു ചട്ടങ്ങൾ അനുസരിച്ചായിരിക്കും നടപടിക്രമങ്ങളെന്നും അംഗങ്ങളുടെ താൽപ്പര്യ ങ്ങൾ പാർട്ടികളുടെ അംഗ്രബലം നോക്കാതെ സംരക്ഷിക്കുമെന്നും അദ്ദേഹം ഉറപ്പുനൽകി ധനമന്ത്രി നിർമല സീതാരാമന്റെ അധ്യക്ഷതയിൽ ന്യൂഡൽഹിയിൽ ചേർന്ന സാമ്പത്തിക സ്ഥിരത വികസന കൌൺസിലിന്റെ ഇരുപതാമത് യോഗം രാജ്യത്തെയും ലോകത്തെയും സാമ്പത്തികസ്ഥിതി അവലോക നംചെയ്തു അടുത്തമാസം അഞ്ചിന് ലോക്സഭയിൽ അവതരിപ്പിക്കുന്ന ബജറ്റിൽ ഉൾപ്പെടുത്തേണ്ട കാര്യങ്ങളും യോഗം ചർച്ച ചെയ്തതായി യോഗത്തിൽ പങ്കെടുത്ത റിസർവ് ബാങ്ക് ഗവർണർ ശക്തികാന്ത ദാസ് വാർത്താ ലേഖകരെ അറിയിച്ചു സാമ്പത്തിക ദുർബല വിഭാഗങ്ങൾക്ക് മുൻഗണന നൽകി സംസ്ഥാന സർവകലാശാലകളിലെ മൂന്ന്ലക്ഷം ഒഴിവുകളും കേന്ദ്ര സർവകലാശാ ലകളിലെ ഏഴായിരം ഒഴിവുകളും വൈകാതെ നികത്തുമെന്ന് കേന്ദ്ര മാന വശേഷി വികസനമന്ത്രി രമേശ് പൊക്രിയാൽ അറിയിച്ചു

കടലാക്രമണ ഭീഷണി നേരിടുന്ന മത്സ്യത്തൊഴിലാളികളെ മാറ്റി പ്പാർപ്പിക്കാൻ പ്രത്യേക പുനരധിവാസ പദ്ധതിയ്ക്ക് സംസ്ഥാന മന്ത്രിസ ഭായോഗം അംഗീകാരം നൽകി

ഫിഷറീസ് വകുപ്പാണ് പദ്ധതി നടപ്പാക്കുന്നത് തീരപ്രദേശങ്ങളിലെ മത്സൃത്തൊഴിലാളി കുടുംബങ്ങൾക്ക് അഞ്ച്കിലോ അരി സൌജനൃമായി നൽകാനും മന്ത്രിസഭ തീരുമാനിച്ചു ഇന്റഗ്രേറ്റഡ് വാട്ടർ ട്രാൻസ്പോർട്ട് സിസ്റ്റം എന്ന പദ്ധതിയ്ക്കായി ജർമ്മൻ ഫണ്ടിങ് ഏജൻസിയായ കെ

ആർ

സമർപ്പിച്ച പ്രൊജക്റ്റ് കരാറും ഫൈനാൻസിങ് കരാറും മന്ത്രിസഭ അംഗീകരി ച്ചു ദേശീയ പെൻഷൻ പദ്ധതി പുനരവലോകനം ചെയ്യുന്ന സമിതിയുടെ തുടർ പ്രവർത്തനങ്ങൾക്ക് ഫണ്ട് അനുവദിക്കാനും തീരുമാനിച്ചിട്ടുണ്ട്

സാഹിത്യകാരൻ യു

ഖാദറിന്റെ ചികിത്സയ്ക്ക് മുഖ്യമന്ത്രിയുടെ ദൂരിതാശ്വാസനിധിയിൽനിന്ന് പത്ത്ലക്ഷം രൂപ നൽകാനും മന്ത്രിസഭ തീരുമാനിച്ചു എൻജിനിയറിങ് ആർക്കിടെക്ചർ ഫാർമസി കോഴ്സുകളിലേയ്ക്ക് ആദ്യഘട്ട അലോട്ട്മെന്റ് ഇന്ന് രാത്രി എട്ടിന് പ്രസിദ്ധീകരിക്കും അലോട്ട്ലഭിക്കുന്ന വിദ്യാർഥികൾ മെമ്മോയിൽ രേഖപ്പെടുത്തിയതും പ്രവേശന പരീക്ഷാ കമ്മിഷണർക്ക് അടയ്ക്കേണ്ടതുമായ തുക സംസ്ഥാ നത്തെ ഏതെങ്കിലും ഹെഡ്പോസ്റ്റോഫീസിലോ ഓൺലൈൻ പെയ്മെന്റ് വഴിയോ അടയ്ക്കണം നാളെമുതൽ ബുധനാഴ്ച ഉച്ചയ്ക്ക് മൂന്നുവരെയാണ് ഇതിന് സമയം അനുവദിച്ചിരിക്കുന്നത് ലോകകപ്പ് ക്രിക്കറ്റിൽ ന്യൂസിലന്റ് നാല് വിക്കറ്റിന് ദക്ഷിണാഫ്രിക്കയെ തോൽപ്പിച്ചു

വിജയത്തോടെ ന്യൂസിലന്റ് സെമി സാധ്യത സജീവമാക്കി

ഇതോടെ അഞ്ച് കളികളിൽനിന്ന് ഒൻപത് പോയിന്റ് ലഭിച്ച ന്യൂസിലന്റ് പട്ടികയിൽ ഒന്നാമതെത്തി സംസ്ഥാന ചലച്ചിത്ര അക്കാദമി സംഘടിപ്പിക്കുന്ന പന്ത്രണ്ടാമത് രാജ്യാന്തര ഡോക്യുമെന്ററി ഹ്രസ്വചലച്ചിത്രമേള നാളെ വൈകിട്ട് തിരു വനന്തപുരത്ത് ആരംഭിക്കും ഗവർണർ പി സദാശിവം ഉദ്ഘാടനം ചെയ്യും ഇത്തവണത്തെ ലൈഫ് ടൈം അച്ചീവ്മെന്റ് പുരസ്കാരം പ്രമുഖ ഡോക്യുമെന്റി സംവിധായിക മധുശ്രീ ദത്തയ്ക്ക് ബുധനാഴ്ച നടക്കുന്ന സമാപന ചടങ്ങിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ സമ്മാ നിക്കും

സബ് ഇൻസ്പെക്ടർമാരായ വിനായക് ജാദവ് ദയാനന്ദ് പവാർ എന്നിവരാണ് അന്വേഷണത്തിനായി കണ്ണൂരിലെത്തിയത് ഫോൺ സ്വിച്ച് ഓഫ് ആയതുകാരണം ബിനോയ് കോടിയേരിയുമായി ബന്ധപ്പെടാൻ കഴിഞ്ഞില്ലെന്ന് ജാദവ് പിന്നീട് മാധ്യമങ്ങളോട് പറഞ്ഞു ബിഹാർ സ്വദേ ശിയായ വനിത നൽകിയ പരാതിയിൽ ഉന്നയിച്ച കാര്യങ്ങൾ പരിശോധി ച്ചുവരികയാണെന്നും കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്നും അദ്ദേഹം അറി യിച്ചു കോഴിക്കോട് ജില്ലയിൽ സമാന്തര പ്രവർത്തനം നടത്തിയവർക്കെ തിരേ കർശനനടപടി എടുക്കാൻ ആവശ്യപ്പെടുമെന്ന് കേരള കോൺഗ്രസ് എം കോഴിക്കോട് ജില്ലാ പ്രസിഡന്റ് ടി

ജോസഫ് പറഞ്ഞു

നേതാക്കൾ നൽകിയ നിർദ്ദേശം കാ്റ്റിൽപറത്തി പ്രകോപനപ രമായ രീതിയിൽ ജോസഫ് വിഭാഗം നടത്തുന്ന നീക്കം യു

വിരുദ്ധമാണെന്നും അദ്ദേഹം കോഴിക്കോട്ട് പറഞ്ഞു എല്ലാ പെയ്മെന്റുകളും ഇന്നുമുതൽ ഓൺലൈനായി മാത്രമേ സ്വീക രിക്കൂ എന്ന് കാലിക്കറ്റ് സർവകലാശാല അറിയിച്ചു ഓൺലൈൻആയി അല്ലാതെ പണം അടച്ചാൽ സേവനങ്ങൾ ലഭിക്കില്ലെന്നും സർവകലാ ശാല വ്യക്തമാക്കി കണ്ണൂർ ചെറുപുഴയ്ക്കടുത്ത് പാടിയോട്ട് ചാലിൽ ബൈക്ക് മറിഞ്ഞ് ഒരാൾ മരിച്ചു

കൂടെയുണ്ടായി രുന്നയാൾക്ക് പരിക്കേറ്റു കോഴിക്കോട് ചേവരമ്പലത്ത് ബസിന്റെ ഡോറിൽ നിന്നും വീണ് കണ്ടക്ടർ മരിച്ചു കോഴിക്കോട് കണ്ണങ്കര ബേബിയാണ് മരിച്ചത് ഇന്നലെ വൈകീട്ടായിരുന്നു അപകടം ഇടുക്കി ചിന്നക്കനാലിലെ വ്യാപാരിയെ കബളിപ്പിച്ച് ഒന്നരകോടിയിലേറെ രൂപയുടെ ഏലക്ക തട്ടിയെടുത്ത സംഭവത്തിൽ മലപ്പുറം സ്വദേശിയെ പൊലീസ് അറസ്റ്റ് ചെയ്തു

സംഭവത്തിൽ ഉൾപ്പെട്ട കണ്ണൂർ തലശ്ശേരി കയ്യാറ്റൽ തയ്യിൽ നൌഫൽ കൊയിലാണ്ടി കീഴൂർമഠത്തിൽ അബ്ദുൾ ജലീൽ എന്നിവർക്കായി തിരച്ചിൽ പൊലീസ് ഊർജ്ജിതമാക്കി മഴക്കാലമായതോടെ കൊതുകു വർധിച്ചുവരുന്ന സാഹചരൃത്തിൽ ഇടുക്കി ജില്ലയിൽ രോഗപ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കാൻ ജില്ലാ കളക്ടർ എച്ച് ദിനേശന്റെ അധ്യക്ഷതയിൽ ചേർന്ന വിവിധ വകുപ്പു പ്രതിനിധികളുടെ യോഗം തീരുമാനിച്ചു

വണ്ണപ്പുറം മേഖലയിലെ മുള്ളരിങ്ങാട്ടാണ് ഡെങ്കിപ്പനി ബാധിതർ കൂടുതൽ തീരദേശ മേഖലയെ കൊതുകുജനൃ രോഗങ്ങളിൽ നിന്നും മുക്തമാക്കുന്നതിനായി കൊല്ലം ജില്ലാ മെഡിക്കൽ ഓഫീസിന്റെ നേതൃത്വത്തിൽ ആരോഗൃതീരം പദ്ധതി ആരംഭിച്ചു്

പെൺകുട്ടിക്ക് നൽകേ ണ്ടതുക പലിശസ്ഹിതം നിശ്ചയിക്കാനും തുക ലഭ്യമാക്കാൻ നടപടി കൾക്കും ജില്ലാ എൻഫോഴ്സ്മെന്റ് ലേബർ ഓഫീസർക്ക് നിർദ്ദേശം നൽകി

കോഴിക്കോട് ചാത്തമംഗലത്ത് ഒരു സി

എസ്